രാജ്യത്ത് ഇന്നുമുതൽ ലോക്ക് ഡൌണിൽ കൂടുതൽ ഇളവുകൾ ആരാധനാലയങ്ങളും ഷോപ്പിംഗ് മാളുകളും ഹോട്ടലുകളും തുറക്കും

കേരളത്തിൽ നാളെ മുതൽ ഇള്ളവുകൾ പ്രാബല്യത്തിലാകും ഹോട്ട്സ്പോട്ടിലും കീണ്ടെയ്മെന്റ് മേഖലകളിലും ഒഴികെയുള്ള മുഴുവ്ൻ സർക്കാർ ഓഫീസുകളും സ്ഥാപനങ്ങളും ഇന്നൂമൂത്ൽ പൂർണ്ണമായും പ്രവർത്തിക്കും

സംസ്ഥാന സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ഡൽഹി സ്വദേശികൾക്ക് മാത്രം ചികിത്സയെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ് രിവാൾ

ആരാധനാലയങ്ങളിൽ പ്രസാദം വിതരണം ചെയ്യാൻ പാടില്ല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

മാളുകളിൽ കുട്ടികൾക്കുള്ള കളിസ്ഥലം തുറക്കാൻ പാടില്ല ആൾക്കൂട്ടം പൂർണമായും നിരോധിച്ചിട്ടുണ്ട് കേരളത്തിൽ കേന്ദ്ര നിർദേശം പാലിച്ച് നിയന്ത്രണങ്ങളോടെ നാളെയാണ് മാളുകളും ഹോട്ടലുകളും ആരാധനാലയങ്ങളും തുറക്കുന്നത് ഇതിന് മുന്നോടിയായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്

എല്ലാ ജീവനക്കാരും ജോലിക്ക് ഹാജരാകണം പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് മാത്രമാണ് ഇളവുകൾ ഇവർക്ക് വർക്ക് ഫ്രം ഹോം ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താനും നിർദ്ദേശമുണ്ട് ശനിയാഴ്ച അവധി ദിവസമായി തുടരും

ബീഹാറിൽ ബിജെപി സംഘടിപ്പിച്ച വെർചൽ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

സംസ്ഥാനങ്ങളിലേയും മുഴുവൻ കൂടിയേറ്റ എല്ലാ തൊഴിലാളികളെയും സ്വന്തം നാട്ടിൽ തിരികെ എത്തിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നത്

കോവിഡ് പ്രതിസന്ധി അവസാനിക്കും വരെ ഡൽഹി സ്വദേശികൾക്ക് മാത്രമേ രാജ്യതലസ്ഥാനത്തെ സംസ്ഥാന സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ അനുവദിക്കുകയുള്ളൂവെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വൃക്തമാക്കി എന്നാൽ കേന്ദ്ര സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയ ഉൾപ്പെടെ പ്രത്യേക ചികിത്സാ സൌകര്യങ്ങൾ ലഭ്യമായിരിക്കും

പ്ല രാജ്യങ്ങളും വിദേശത്തു നിന്നുള്ളവർക്ക് പ്രവേശനം ആന്റുവദിക്കുന്നില്ല

ആരോഗ്യ മന്ത്രാലയം അനുശാസിക്കുന്ന മാർഗ നിർദ്ദേശങ്ങൾ ഇവിടെ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പു വരുത്തണമെന്ന് ആർക്കിയോളജിക്കൽ സർവ്വേ ഓഫ് ഇന്ത്യ നിർദ്ദേശിച്ചു

സൌദി അറേബ്യൻ സർക്കാർ ഇതു സംബന്ധിച്ച് വ്യക്തത വരുത്താത്തതിനാൽ ഇന്തോനേഷ്യ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഹജ്ജ് യാത്രാ പദ്ധതികൾ സ്വമേധയാ റദ്ദാക്കുകയാണ് അതേസമയം ഹജ്ജ് യാത്ര ഉപേക്ഷിക്കണമെന്നുള്ളവർക്ക് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയ്ക്ക് ഇതു സംബന്ധിച്ച വിവരങ്ങൾ ഇ മെയിൽ ചെയ്യാമെന്ന് കേന്ദ്രം വൃക്തമാക്കി

റെബാളിൽ ആർമിയും സിആർപിഎഫ് ഉം ഷോപിയാൻ പോലീസും നടത്തിയ സംയുക്ത സൈനിക നടപടിയിലാണ് ഭീകരരെ വധിച്ചത് പട്രോളിംഗ് നടത്തുകയായിരുന്ന സൈനികർക്കു നേരെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു

അതേസമയം കൊറോണ പരിശോധന സംവിധാനം ഐ സി എം

എട്ട് പേർക്ക് സ്മ്പർക്ക്ത്തിലൂടെയാണ് രോഗം ബാധിച്ചത്

കവിഞ്ഞു

തെക്കൻ കർണാടകം തമിഴ്നാടിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങൾ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കു പടിഞ്ഞാറ് പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാലവർഷം എത്തിയതായി കേന്ദ്ര ഭൌമ ശാസ്ത്ര മന്ത്രാലയം വൃക്തമാക്കി

നാളെ ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി പാലക്കാട് ജില്ലകൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടിക്കാൻ പോകരുതെന്നും മുന്നറിയിപ്പ് ഉണ്ട്

ചുഴലിക്കാറ്റിന്റെ ഉത്ഭവം ഗ്നിതി ത്രീവത കരതൊടുന്ന സ്ഥലം സമയം എന്നിവ മൂന്ന് ദ്ദിപ്പ്സ്ട് മുൻപ് തന്നെ കൃത്യമായി പ്രവചിച്ചതിലൂടെ ഇന്ത്യയ്ക്കൊപ്പം ബംഗ്ലാദേശിലും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളില്ടൂടെ ് മുന്നൊരുക്കം സാധൃമായതായി ലോക കാലാവസ്ഥാ സ്ട്ര്ല്ടിന സെക്രട്ടറി ജനറൽ പറഞ്ഞു

ഓഫീസുകളിൽ സാമൂഹിക അകലം പാലിക്കുന്നതുൾപ്പെടെ ആരോഗൃ മന്ത്രാലയം നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം